മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് രാജ്യത്തിന്റെ ആദരാഞ്ജലി

മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ വിയോഗത്തിൽ ഒരാഴ്ചത്തെ ദേശീയ ദുഖാചരണ്ണം ഈ മാസം ആറു വരെ ഔദ്യോഗിക പൊതുപരിപാടികൾ ഉണ്ടാകില്ല

കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് ഇളവുകൾ ബാധക്മൂല്ല

ജെഇഇ മെയിൻ പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം

ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവച്ചിട്ടുണ്ട് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ കാലയളവിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സംസ്കാരച്ചടങ്ങുകൾ നടക്കുക

അഞ്ചു ദശാബ്ദങ്ങൾ നീണ്ട അദ്ദേഹത്തിന്റെ പൊതുജീവിതം എല്ലാവർക്കും മാതൃകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു

പ്രണബ്മുഖർജിയുടെ നിര്യാണത്തിൽ ബംഗ്ലാദേശിൽ നാളെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു

യഥാർത്ഥ സുഹൃത്തിനെയാണ് നഷ്ടമായതെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോളതലത്തിൽ ഏറെ ബഹുമാനിക്കപ്പെട്ട വൃക്തിത്വമായിരുന്നു പ്രണബ് മുഖർജിയെന്ന് റഷ്യൻ പ്രസിഡന്റ് അനുശോചിച്ചു ഇസ്രൂയേൽ പ്രസിഡൻറ് റുവൻ റിവലിൻ നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മൂ ഒലി ശ്രീലങ്കൻ പ്രസിഡൻറ് മഹിന്ദ രജ പക്സെ തുടങ്ങിയുപ്പർ പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ അനുശോചനം അറീയിച്ചു

ഇന്ത്യയുടെ യശസ്സ് സാർവ്വദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു പ്രണബ് മുഖർജി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെയ്സ്ബുക്കിൽ അനുസ്മരിച്ചു കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിനേതാക്കളും പ്രണബ്മുഖർജിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി

കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ഇളവുകൾ കൂടുതൽ വിവരങ്ങളുമായി സുവർണ

കേന്ദ്രീ ആഭ്യന്തര മന്ത്രാലയം ഇതു സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു

കണ്ടെയ്ൻമെന്റ് സോണുകളിൽ യാതൊരു ഇളവുകളും ബാധകമല്ല ഈ പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരും ന്യൂസ്ഡസ്ക് ആകാശവാണി

് ഏഴ് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു

അതേസമയം രണ്ട് പ്രദേശങ്ങളെ കൂടി ഹോട്ട് സ്പോട്ടിൽ ഉൾപ്പെടുത്തി പ്രദേശങ്ങളെ ഹോട്ട് സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും പരീക്ഷ ജെഇഇ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി റെയിൽവേ യാത്രാസൌകര്യമൊരുക്കിയിട്ടുണ്ട് മുംബൈയിലെ സ്പെഷ്യൽ സബ്അർബൻ ട്രെയിനുകളിൽ വിദ്യാർത്ഥികൾക്ക് റെയിൽവേ യാത്രാനുമതി നൽകി പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സബ്അർബൻ സ്റ്റേഷനുകളിൽ പ്രവേശിക്കാം പ്രധാന ഒറ്റയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ ബുക്കിംഗ് കൌണ്ടറുകൾ ആരുഭിക്കുമെന്നും റെയിൽവേ അറിയിച്ചു

വളരെ വേഗം വൃാപിക്കുന്ന കൊറോണ വൈറസ് എല്ലാ പ്രായക്കാരിലും മരണകാരണം വരെയാകാൻ സാധൃതയുള്ളതാണ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുന്ന രാജ്യങ്ങൾ രോഗവ്യാപനം മാർഗ്ഗങ്ങളെപ്പറ്റിയും തടയാനുള്ള ചിന്തിക്കേണ്ടതുണ്ടെന്നും ശ്രീ

വാക്സിനുകൾ അംഗീകരിക്കാൻ രാജ്യങ്ങൾക്ക് അനുമതിയുണ്ടെങ്കിലും അതിനെ ലാഘവത്തോടെ കാണരുതെന്ന് ലോകാരോഗ്യ സംഘടന മുഖ്യ ശാസ്ത്രജ്ഞ സൌമ്യ സ്വാമിനാഥൻ പറഞ്ഞു പരീക്ഷണഫലങ്ങൾ കൃത്യമായിക്കുനിരീക്ഷിച്ചും ഫലപ്രാപ്തി ഉറപ്പാക്കിയുമായിരിക്കണം വാക്സിന്റുക്ൾക്ക് അംഗീകാരം നൽകേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു്

രാജസ്ഥാനിലെ അൽവാറിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിലുളള സാങ്കേതിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

മനുഷൃ വിഭവ ശേഷിയുടെ മികവ് വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളുടെ വികസനത്തിന് സംസ്ഥാന സർക്കാരുകളും പങ്കാളികളാകണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു ഇന്ത്യയെ വലിയ ഉൽപാദക കേന്ദ്രമാക്കി മാറ്റുന്നതിന് സാങ്കേതിക വൈദഗ്ധ്യമുളള സമൂഹം അനിവാര്യമാണെന്നും ശ്രീ നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടു

സുശാന്തിന്റെ മുൻ മാനേജർ ശ്രുതി മോദിയെയും സിബിഐ വിളിപ്പിച്ചിരുന്നു

എ ഇ ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലായതോടെ ഇസ്രായേലിൽ നിന്നുള്ള ആദ്യവിമാനം ഇന്നലെ അബുദാബിയിലെത്തി

ഇവർ യുഎഇയിലെ ഗവൺമെന്റ് ഏജൻസി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും പരസ്സ്പര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വീഷ്ടയ്ങൾ ചർച്ച ചെയ്യും

കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചിഹ്നതർക്കത്തിൽ അന്തിമ തീരുമാനം അറിയിച്ചത്

എന്നാൽ അപ്പീൽ നൽകുമെന്ന് പി

ജോസഫും അറിയിച്ചു